വാർത്തകൾ വിശദമായി കാലവർഷത്തിൽ സംസ്ഥാനത്തുണ്ടായ നഷ്ടങ്ങൾ സമഗ്രമായി വിലയിരുത്തി വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിനു സമർപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോഡിയെ അറിയിച്ചതായി മുഖ്യമന്ത്രി പിണറായി മുഖ്യമന്ത്രിമാരുമായി വിജയൻ പ്രധാനമന്ത്രി പറഞ്ഞു

എഫ് കമ്പനികളെ സംസ്ഥാനത്തേക്ക് അയച്ചതിനും ഇടുക്കി രാജമലയിൽ ഉരുൾപ്പൊട്ടലുണ്ടായിടത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് എൻ ഡിആർഎഫ് നൽകിയ സഹായത്തിനും കരിപ്പൂർ വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ലഭ്യമാക്കിയ സഹായ സഹകരണങ്ങൾക്കും പ്രധാനമന്ത്രിയെ നന്ദി അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തെ സംബന്ധിക്കുന്ന നിരവധി വിഷയങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇടപെടലിന്റെ രാജമലയിൽ മനുഷ്യ ഫലമായല്ല ഉരുൾപ്പൊട്ടലുണ്ടായതെന്നും ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമായി രാജമലയെ കണക്കാക്കിയിരുന്നില്ലെന്നും പ്രധാനമന്ത്രിയെ അറിയിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രളയ ഫണ്ട് കൃത്യമായി ചെലവഴിച്ച് ജനങ്ങൾക്ക് പരമാവധി സഹായം എത്തിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു രേര കഴിഞ്ഞ ദിവസങ്ങളിൽ അതിതീവ്ര മഴ ലഭിച്ച മലയോര മേഖലയിൽ കുറച്ചു സമയം ശക്തമായ മഴ ലഭിച്ചാൽ തന്നെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ തുടങ്ങിയ ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും മലയോര മേഖലയിൽ ജാഗ്രത തുടരണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഈ മാസം കിട്ടേണ്ടതിൽ അധികം മഴ പത്ത് ദിവസം കൊണ്ട് കിട്ടിയതായി മുഖ്യമന്ത്രി പറഞ്ഞു ജലസേചന വൈദ്യുതി വകുപ്പുകളിലെ ചെറിയ അണക്കെട്ടുകളിൽ നിന്ന് നിയന്ത്രിത അളവിൽ ജലം പുറത്തേക്ക് ഒഴുക്കുന്നത് അലർട്ട് ലെവലിന് താഴെ എത്തുന്നത് വരെ തുടരും അതുവരെ അണക്കെട്ടിന് താഴെ നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത തുടരണം സംസ്ഥാനത്ത് അപകടാവസ്ഥ കുറഞ്ഞു വരുന്ന സാഹചര്യമാണെങ്കിലും കുറച്ച് ദിവസംകൂടി ജാഗ്രത തുടരാൻ തന്നെയാണ് നിർദേശമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി

മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ഇന്ന് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

രുമ ദുരന്തമുണ്ടായ ഇടുക്കി രാജമല പെട്ടിമുടിയിൽ ദുരന്തത്തിൽപെട്ടവർക്കായി തെരച്ചിൽ അഞ്ചാം ദിവസമായ ഇന്നും തുടരും

പെട്ടിമുടിയിലുണ്ടായ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങൾക്കോ ദുരിതാശ്വാസത്തിനോ ആവശ്യമായ ധനസമാഹരണം നടത്തുവാൻ ഏതെങ്കിലും വ്യക്തികളെയോ സംഘടനകളെയോ ജില്ലാ ഭരണകൂടം ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു രും സംസ്ഥാനത്ത് കാലവർഷം നാശനഷ്ടം വിതച്ചു കൂടുതൽ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു

മഴ കുറഞ്ഞ സാഹചര്യത്തിൽ നീരൊഴുക്കു കുറഞ്ഞിട്ടുണ്ടെന്നും ഡാം തുറക്കേണ്ടി വന്നാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും കൈക്കൊണ്ടതായും കളക്ടർ പറഞ്ഞു പീരുമേട് ഉടുമ്പൻചോല താലൂക്കുകളിലായി തഹസീൽദാർ ഉൾപ്പെട്ട ടാസ്ക്ക് ഫോഴ്സ് സജ്ജമാണെന്നും അദ്ദേഹം അറിയിച്ചു രുമ പമ്പാ ഡാമിന്റെ ആറു ഷട്ടറുകളും അടച്ചതായി പത്തനംതിട്ട ജില്ലാ കലക്ടർ പി

ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറവായതിനാലാണ് രണ്ട് അടി തുറന്നു വച്ചിരുന്ന ഷട്ടറുകൾ അടച്ചത് രദര വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞതോടെ പെരിങ്ങൽക്കുത്ത് ഡാമിൽ ജലനിരപ്പ് കുറയുന്നു

ജില്ലയിൽ എല്ലാ ഖനന പ്രവർത്തനങ്ങളും ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ജില്ലാ കലക്ടർ നിരോധിച്ചു

സമ്പർക്കവ്യാപന കേസുകൾ വർദ്ധിക്കുന്ന തിരുവനന്തപുരം റൂറൽ ജില്ലയിൽ സാമൂഹിക അകലം പാലിക്കുന്നത് ഉൾപ്പെടെ സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം പകരുന്നതിന് ദക്ഷിണമേഖല പൊലീസ് ഐ ജി ഹർഷിത അത്തല്ലൂരിക്ക് പ്രത്യേക ചുമതല നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു തീരദേശത്ത് കോവിഡ് ബാധ പടരുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വിവിധ വിഭാഗങ്ങളുടെ ഏകോപനത്തിനുമായി ഐ ജി എസ് ശ്രീജിത്തിനെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു

മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗബാധ

ദരദ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി കോവിഡ് രോഗികളുടെ എണ്ണം സംസ്ഥാനത്ത് ഏറ്റവും കുറവ് കണ്ണൂർ ജില്ലയിലാണ്

കാസർകോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ

രുമ കണ്ണൂർ ജില്ലയിൽ കോവിഡ് സമ്പർക്ക വ്യാപനം ഉണ്ടാകുന്നതു തടയാൻ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി ഇ

കണ്ണൂരിൽ കോവിഡ് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രുമ വയനാട് ജില്ലയിൽ കോവിഡ് പരിശോധനകളുടെ എണ്ണം വർധിപ്പിക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി ടി

രുമ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ കോവിഡ് വർധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധന ഊർജ്ജിതമാക്കാൻ മന്ത്രി എ

വലിയങ്ങാടിയോട് ചേർന്ന ജനവാസമേഖലയിലും മത്സ്യത്തൊഴിലാളികൾക്കിടയിലും രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി കോഴിക്കോട്ടു ചേർന്ന അറിയിച്ചു മത്സ്യബന്ധനത്തിനു വരുന്ന അതിഥി തൊഴിലാളികൾ അനുമതി തേടേണ്ടത് നിർബന്ധമാണെന്നും മന്ത്രി പറഞ്ഞു രുമ കോഴിക്കോട് ബീച്ച് ആശുപത്രി കോവിഡ് ആശുപത്രിയാക്കി മാറ്റിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

മുൻ ഉപ മുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന എം

എമാരും ഡൽഹിയിൽ പാർട്ടി നേതാക്കളുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് ഒരു മാസത്തിലേറെ നീണ്ട പ്രതിസന്ധിക്ക് പരിഹാരമായത് പദവികൾക്ക് വേണ്ടിയായിരുന്നില്ല തന്റെ പോരാട്ടമെന്നും ഗവൺമെന്റിലേയും പാർട്ടിയിലേയും ചില കാര്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും സച്ചിൻ പൈലറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു